ഇരുസഭകളും ഉച്ചയ്ക്ക് രണ്ട് മണിവരെ നിർത്തിവെച്ചു

പവൻകുമാർ ഗുപ്തയുടെ തിരുത്തൽ ഹർജി സുപ്രീംകോടതി തള്ളി

നഷ്ടപ്പെട്ടത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സമ്മേളനത്തിന്റെ ആദ്യ ദിവസം തന്നെ നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു

ബീഹാറിൽ നിന്നുള്ള ജെ

അംഗം ബൈദ്യനാഥ് പ്രസാദ് മഹ്തോയുടെ നിര്യാണത്തെ തുടർന്നാണ് സഭ നിർത്തിവച്ചത് ബീഹാർ നിയമസഭയിൽ മൂന്നു തവണ അംഗവും ഗ്രാമ വികസന മന്ത്രിയുമായിരുന്നു മഹ്തോ എന്ന് സ്പീക്കർ സ്മരിച്ചു

ദേശീയ തലസ്ഥാനത്തിന്റെ വടക്കു കിഴക്കൻ ഭാഗങ്ങളിലെ സ്ഥിതി സാധാരണ നിലയിലാക്കുക എന്നതിനാവണം മുൻഗണന നൽകേണ്ടതെന്ന് സഭാ അധ്യക്ഷൻ എം

ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടത്തിന്റെ ആദ്യ ദിവസം സഭ സമ്മേളിച്ചപ്പോൾ ഡൽഹി വിഷയത്തിൽ പ്രതിപക്ഷ അംഗ്ല്ങ്ങളുടെ അടിയന്തര പ്രമേയത്തിനു മറുപടി പറയുകയ്ടായിരുന്നു അദ്ദേഹം സ്ഥിതി സാധാരണ നിലയിലായിക്കഴിഞ്ഞ് വേണം വിഷയം ചർച്ച ചെയ്യാനെന്ന് ശ്രീ നായിഡ്മിക്കൂട്ടിച്ചേർത്തു

വിശദാംശങ്ങളുമായി ദേവിപ്രിയ

ലോകമെമ്പാടുമുള്ള സാമ്പത്തിക മേഖലയിലെ മാറ്റങ്ങൾ ഇപ്പോൾ രാഷ്ട്രീയത്തിലെ പരിവർത്തനങ്ങൾക്ക് വഴിയൊരുക്കുന്നു ഇന്ത്യയെപോലുള്ള ഒരു രാജ്യം മറ്റ് ശക്തികളുടെ ഏകപക്ഷീയമായ ആധിപത്യത്തിനെതിരെ തന്ത്രപരമായി മുന്നേറണം സാമ്പത്തികമായി ലോകത്തിൽ മുന്നേറുക എന്നത് രാഷ്ട്രീയ പരമായി മുന്നേറുന്നതു പോലെ തന്നെ സങ്കീർണമാണ് ദേശീയ ലക്ഷ്യങ്ങൾക്ക് ഊന്നൽ നൽകുമ്പോൾ ഉത്തമമായ അനന്തരഎലിത്തി്ലേക്ക് രാജ്യങ്ങൾക്ക് എത്തിച്ചേരാനാകും ഒരു ഡിജിറ്റൽ ലോകത്തിൽ പുതിയ പങ്കാളിത്തം സൃഷ്ടിക്കുന്നതിനും പ്പിജ്ഞാനത്തിൽ അധിഷ്ഠിതമായ സമ്പദ് വ്യവ്യസ്ഥയ്ക്ക് ചലനാത്മകത സൃഷ്ടിക്കുന്നതിനും ഇന്ത്യ്ക്ക് വെല്ലുവിളിയാണെന്നും ശ്രീ ജയ്ശങ്കർ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇതിനായി ഇറാൻ അധികൃതരുമായി സഹകരിച്ച് പ്രവർത്തിച്ചുവരികയാണെന്ന് വിദേശകാര്യമന്ത്രി എസ്

ഇതുമായി ബന്ധപ്പെട്ട സ്ക്രീനിംഗ് നടപടികൾ ആരംഭിച്ചെന്നും അദ്ദേഹം അറിയിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂർ എന്നിവർ ഈ വിഷയങ്ങളിൽ അയച്ച കത്തുകളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം

കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ശ്ശ്ഖ്ഖരിച്ച്ചതിനെക്കാൾ എട്ടു ശതമാനം കൂടുതലാണിത്

മറാത്ത്വാഡയിലെ ഔറംഗാബാദ് ജാൽന ബീദ് നന്ദേദ് ലത്തൂർ ഓസ്മാനാബാദ് പാർഭംഗി ജില്ലകളിൽ പരുത്തി ഗോതമ്പ് തുവര ചോളം വാഴ മാമ്പഴം എന്നിവയ്ക്ക് നാശനഷ്ടമുണ്ടായി പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിലെ പൂനെ സത്താര സാംഗ്ലി കോലാപൂർ ജില്ലകളിൽ മഴ തുടരുന്നു വാഷിം ജില്ലയിലെ റാബി വിളകളേയും മഴ സാരമായി ബാധിച്ചു

ബി

പ്രതിക്ക് വിധിച്ച ശിക്ഷയിൽ പുനപരിശോധനയില്ലെന്ന് ജസ്റ്റിസ് എൻ വി രമണയുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ ബെഞ്ച് വ്യക്തമാക്കി

വിമാനത്തിൽ സഞ്ചരിക്കുമ്പോൾ ലാപ്ടോപ് സ്മാർട്ട്ഫോൺ ടാബ്ലറ്റ് തുടങ്ങിയവ ഉപയോഗിക്കുന്നവർക്ക് ഇന്റർനെറ്റ് സൌകര്യം പൈലറ്റ് ഇൻ കമാൻഡ് അനുവദിക്കുമെന്ന് ഔദ്യോഗിക വിജ്ഞാപനത്തിൽ പറയുന്നു

ഗൌതം ബുദ്ധനഗറിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉത്തർപ്രദേശിലെ മാറ്റം ഇപ്പോൾ വാക്കിലും പ്രവൃത്തിയിലും പ്രക്ട്മാണെന്ന് ശ്രീ ആദിത്യനാഥ് പറഞ്ഞു

ബി എസ്

നേരത്തെ പ്രദേശത്തുണ്ടായ സംഘർഷത്തെ തുടർന്ന് ബോർഡ് പരീക്ഷകൾ മാറ്റിവെച്ചിരുന്നു ഈ മാസം ഏഴു വരെ പരീക്ഷയെഴുതാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്ക് പിന്നീട് പരീക്ഷയെഴുതാനുള്ള അവസരം നൽകും

സിറിയൻ സേനയുടെ ജബൽ അൽ സാവിയേ അൽ ഹാംദിയേ ക്യാമ്പുകൾ ലക്ഷ്യം വച്ചായിരുന്നു തുർക്കി ഡ്രോൺ ആക്രമണങ്ങൾ

ഇദ്ലിബിൽ രണ്ട് സിറിയൻ യുദ്ധവിമാനങ്ങൾ തുർക്കി സേന തകർത്തു

വിഷയത്തിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന പ്രതിപക്ഷ ആവശ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ തള്ളി

സിംസ് പദ്ധതിയിൽ കെൽട്രോണിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടോ എന്ന് വ്യവസായ വകുപ്പ് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

എ ജി റിപ്പോർട്ട് സംബന്ധിച്ച് നിയമസഭ പബ്ലിക് അക്കൌണ്ട്ട്സ് സമിതിയുടെ പരിശോധനയടക്കം സുതാര്യമായ പ്രിക്രിയകൾ നിലവിലുണ്ട് അസ്വാഭാവികമാട്ട്യ എന്തോ സംഭവിക്കുന്നതായ പുകമറ സൃഷ്ടിച്ച് സർക്കുരിനെ ്സംശയത്തിന്റെ നിഴലിൽ നിർത്താനാണ് പ്രതിപക്ഷ്ത്തിന്റെ ശ്രമം വിഷയത്തിൽ മറ്റ് എന്ത് നടപടികൾ സ്വീക്രിക്കണമെന്ന കാര്യം മന്ത്രിസഭ പരിശോധിച്ച് തീരുമാനമെടുക്കും